എം പി മാർക്കും എം എൽ എമാർക്കുമെതിരായ ക്രിമിനൽ കേസുകളിൽ വിചാരണ വേഗത്തിലാക്കാൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും പ്രത്യേക കോട തികൾ ആരംഭിക്കണമെന്ന് സുപ്രീം കോടതി ശബരിമല വിഷയത്തിൽ യു ഡി എഫ് എം എൽഎമാരുടെയും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെയും നിരാഹാരസമരം മൂന്നാം ദിവസത്തി ലേക്ക് നിരോധനാജ്ഞ ശനിയാഴ്ചവരെ നീട്ടി കരിപ്പൂരിൽനിന്ന് വലിയ വിമാനങ്ങളുടെ സർവീസ് ഇന്ന് പുനരാരംഭിക്കും ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും സമനില രു ൽ ഒ ൽ ഇന്ത്യയും യു എ ഇയും സ്വന്തം കറൻസിയിൽ വിനിമയം സാധ്യമാക്കുന്ന തിന് കറൻസി സ്വാപ് കരാറിൽ ഒപ്പുവെച്ചു

ഇന്ത്യൻ രൂപയും യു എ ഇ ദിർഹവും കൈമാറാൻ റിസർവ്വ് ബാങ്ക് ഓഫ് ഇന്ത്യയെയും യു എ ഇ സെൻട്രൽ ബാങ്കിനെയും അനുവദിക്കുന്നതാണ് സ്വാപ് കരാർ ഇത് പ്രാബലൃത്തിലാവുന്ന തോടെ ഡോളർ അടിസ്ഥാനമാക്കാതെ രൂപയിലും ദിർഹത്തിലും ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാകും ഡോളറിന്റെ വിലവൃത്യാസം വിനിമയത്തെ ബാധി ക്കില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത ആഫ്രിക്കയുടെ വികസനത്തിൽ ഇന്ത്യയു ടെയും യു എ ഇയുടെയും സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച കരാ റിലും ഇരുരാജ്യങ്ങളും ഒപ്പുവെച്ചു ഊർജ്ജം സുരക്ഷ വ്യാപാരം നിക്ഷേപം ബഹിരാകാശം പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കു ന്നത് സംബന്ധിച്ചും സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സുഷമസ്വരാജും അബ്ദുല്ല ബിൻ സായദ് അൽ നഹിയാനും ചർച്ച നടത്തി ഗാന്ധി സായദ് ഡിജിറ്റൽ മ്യൂസിയവും ഇരുനേതാക്കളും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു

പിന്നീട് യു എ ഇയിലെ ഇന്ത്യൻ സമൂഹവുമായി സുഷമസ്വരാജ് ആശയവിനിമയം നടത്തി

അർദ്ധരാത്രിയോടെ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കൊണ്ടുവന്ന അദ്ദേഹത്തെ സി ബി ഐ കസ്റ്റഡിയിലെടുത്തു ഇയാളെ ഇന്ന് ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കിയേക്കും എം പി മാർക്കും എം എൽ എമാർക്കുമെതിരായ ക്രിമിനൽ കേസുക ളിൽ വിചാരണ നടപടികൾ വേഗത്തിലാക്കാൻ കേരളത്തിലും ബീഹാറിലും എല്ലാ ജില്ലകളിലും പ്രത്യേക കോടതികൾ ആരംഭിക്കാൻ സൂപ്രീം കോടതി നിർദ്ദേശം നൽകി ഹൈക്കോടതി രജിസ്ട്രിമാരോട് എത്രയും വേഗം ഇക്കാര്യത്തിൽ നടപടി യെടുക്കാനും കോടതി നിർദ്ദേശിച്ചു മുൻ എം എൽ എമാർക്കും എം പി മാർക്കു മെതിരായ ക്രിമിനൽ കേസുകളും കോടതികളുടെ പരിഗണനയ്ക്കുവരും

കൌൾ കെ

ജോസഫ് എന്നിവരടങ്ങിയ ബഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി ് ശബരിമലയിലെ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പൂർണ്ണമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് എം എൽ എമാർ നിയമസഭാ കവാ ടത്തിന് മുന്നിൽ നടത്തുന്ന സത്യഗ്രഹം മൂന്നാം ദിവസത്തേക്ക് കടന്നു

ശിവകുമാർ പാറക്കൽ അബ്ദുള്ള എൻ ജയരാജ് എന്നിവരാണ് സത്യഗ്രഹം നട ത്തുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാരസമരം മൂന്നാം ദിവസവും തുടരുന്നു ശബരിമലയിലെ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പിൻവലിക്കുക അയ്യപ്പഭക്തർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക കെ സുരേന്ദ്രനെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്ന യിച്ചാണ് സമരം

ശനിയാഴ്ച അർദ്ധരാത്രിവരെ ഇലവുങ്കൽ നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നി വിടങ്ങളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് പത്തനംതിട്ട ജില്ലാകലക്ടർ പി

നൂഹ് ഉത്തരവിട്ടത് ദർശനത്തിന് കൂട്ടമായി ഭക്തർ എത്തുന്നതിനോ ശരണം വിളി ക്കുന്നതിനോ നാമജപം നടത്തുന്നതിനോ വിലക്കില്ലെന്ന് കലക്ടർ അറിയിച്ചു

ശബരിമല യിലെ നിയന്ത്രണങ്ങളും നിരോധനാജ്ഞയും അടിയന്തരമായി പിൻവലിക്കുക ബന്ധു നിയമനത്തിൽ മന്ത്രി കെ

ജലീൽ രാജിവെയ്ക്കുക തുടങ്ങിയ ആവശ്യ ങ്ങൾ ഉന്നയിച്ചും പ്രളയശേഷമുള്ള പുനർനിർമ്മാണത്തിൽ ഗവൺമെന്റിന്റെ പരാ ജയം ചൂണ്ടിക്കാട്ടിയുമാണ് ധർണയെന്ന് അദ്ദേഹം പറഞ്ഞു ് ് ് ് ് ് കരിപ്പൂർ വിമാനത്താവളിത്തിൽ നിന്നും വലിയ വിമാനങ്ങളുടെ സർവീസ് ഇന്ന് പുനരാംരംഭിക്കും

ആദ്യ വിമാനത്തെ എയർപോർട്ട് ഫയർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കും ജനപ്രതിനിധികൾ വിമാനത്താവള ഉപദേശകസമിതി അംഗങ്ങൾ വ്യോമയാന മന്ത്രാലയപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും

ഉദ്ഘാടനദിവസം അബുദാബിയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടാതെ തിരുവനന്തപുരത്തേക്ക് ഗോ എയറും സർവ്വീസ് നടത്തും

ഇതിന്റെ ഭാഗമായി പരിശീലനം ലഭിച്ച ആശ വളണ്ടിയർമാരും സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന സംഘം വീടുകളിൽ സന്ദർശനം നടത്തും

കോഴിക്കോട് ജില്ലയിലെ പ്രചാരണ പരിപാടി രാവിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യും ് കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കലക്ട്രേറ്റിന്സമീപം പി

ശ്രീമതി എം

ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും സമനി ല കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും ഓരോ ഗോൾ നേടി മൂന്ന് തുടർ പരാജയങ്ങൾക്കുശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ തുടർച്ചയായ രണ്ടാം സമനിലയാണിത്

മത്സരാർഥികളുടെ രജിസ്ട്രേഷൻ നാളെ തുടങ്ങും

് ് ് ് ് ശുചിത്വരാഷ്ട്രം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വച്ഛ് ഭാരത് പ്രത്യേക ബോധവൽക്കരണ പരിപാടി കോഴിക്കോട് കുണ്ടായിത്തോടിൽ ഇന്നാ രംഭിക്കും കണ്ണൂർ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ ഐ സി ഡി എസുമായി സഹകരി ച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രാജ്യത്തെ തെരഞ്ഞെടുത്ത് കോർപറേഷനു കളിലും ബ്ലോക്കുകളിലുമാണ് മൂന്നു ദിവസത്തെ പ്രത്യേക പ്രിപാടി സംഘടിപ്പി ക്കുന്നത് സംസ്ഥാനത്തെ കോഴിക്കോട് കൊച്ചി തൃശൂർ കൊല്ലം കോർപറേഷ നുകൾക്ക് പുറമെ ഏതാനും ബ്ലോക്കുകളും പ്രത്യേക ബോധവൽക്കരണ യജ്ഞ ത്തിനായി കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുത്തിട്ടുണ്ട്

ടി ജലീലിന്റെ കാര്യത്തിൽ മറ്റൊരു രീതിയും എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും ഒരേ വിഷയത്തിൽ ഇരട്ട നീതിയാണ് പിണറായിയുടേതെന്നും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി

സി സി ഓഫീസിൽ കെ വെളുത്തമ്പു സ്മാരക ഹാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവോത്ഥാനത്തിന്റെ പേരിൽ പിണറായി വിജയൻ സംസ്ഥാനത്ത് നടത്തുന്നത് വനിതാ മതിൽ അല്ലെന്നും വർഗ്ഗീയ മതിലാണെന്നും കെ പി സി സി മുൻ പ്രസിഡണ്ട് എം എം ഹസ്സൻ പറഞ്ഞു

ശ്രീധരൻപിള്ളയ്ക്ക് വധ ഭീഷണി ഉയർത്തിയ കത്ത് സംബന്ധിച്ച് പൊലീസ് അന്വേഷണം ആരംഭിച്ചു ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് വധഭീഷണി ഉയർത്തിയ കത്ത് ലഭി ച്ചത്

പ്രഖ്യാപിച്ച അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി രാജ്ഭവൻ മാർച്ച് നടത്തി സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേററ് അംഗം കെ

ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു